മേഖലയ്ക്കായുള്ള പുതിയ ചരക്ക് ഇടനാഴിക്കു കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലെത്തിയ ആറു പേർക്കു ജനിതകമാറ്റം വന്ന കോവിഡ് സ്ഥിരീകരിച്ചു

മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം രഹാനെ കളിയിലെ താരം

സ്വാശ്രയ ഭാരതം എന്ന സ്ഥപ്നത്തിന് ഇടനാഴി ക്രുത്തുപകരും എന്നും കിസാൻ റെയിൽ സംവിധാനത്തെ ഇത് ശാക്തീകരിക്കുമെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

കാൺപൂർ ഡൽഹി പ്രധാന പാതയിലെ തിരക്ക് ഒഴിവാക്കാനും കൂടുതൽ വേഗത്തിൽ റെയിൽ സേവനം ലഭ്യമാക്കാനും ഇടനാഴി വഴിയുറക്കും മനുഷ്യശരീരത്തിന് രക്തധമനികൾ എത്രത്തോളം ആവശ്യമോ അത്രയും തന്നെ പ്രധാനമാണ് ഒരു രാഷ്ട്രത്തിന് ഗതാഗതസൌകരൃങ്ങൾ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

പുതിയ ഇടനാഴി യാഥാർത്ഥ്യമായതോടെ ഇതു വഴിയുള്ള ചരക്ക് തീവണ്ടികളുടെ വേഗം മുന്നിരട്ടിയായി വർദ്ധിക്കുമെന്നു ചടങ്ങിൽ സംസാരിച്ച റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു

ഉത്തർപ്രദേശിലെ നിരവധി കർഷകർക്കും വൃവസായ സംരംഭങ്ങൾക്കും പുതിയ ഇടനാഴിയുടെ പ്രയോജനം ലഭിക്കും കാർഷിക ഉത്പന്നങ്ങൾ കൂടുതൽ വേഗത്തിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കാനും കയറ്റുമതി വർധിപ്പിക്കാനും പുതിയ ഇടനാഴിയിലൂടെ സാധിക്കും

അടിസ്ഥാന സൌകര്യങ്ങൾക്ക് മേൽ നടത്തുന്ന ആക്രമണം രാജ്യത്തെ ഓരോ പൌരനു നേരെയുമുള്ള ആക്രമണമാണ് പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കുമ്പോൾ ഇക്കാര്യം ഓർക്കണം അടിസ്ഥാനസൌകര്യ വികസനം എന്നത് രാഷ്ട്രീയപരമായ ഒന്നല്ല അത് വരും തലമുറയ്ക്ക് വേണ്ടിയാണ് അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണെന്നും ശ്രീ മോദി പറഞ്ഞു

പുതിയ മോഡലുകൾക്ക് അടുത്ത വർഷം ഏപ്രിൽ ഒന്നും നിലവിലുള്ള മോഡലുകൾക്ക് ജൂൺ ഒന്നും ആണ് ഇത് നടപ്പാക്കാനുള്ള സമയപരിധി ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയം കരട് വിജ്ഞാപനം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്

ഇവരുടെ സഹയാത്രികരെയും പ്രകൂട്ടു് ്ബാംഗങ്ങളെയും അടുത്തു ബന്ധപ്പെട്ടവരെയും കണ്ടെത്താൻ ശ്രീമം ആരംഭിച്ചു

മൂന്ന് പേരിൽ ജനിതകമാറ്റം വന്ന വൈറസ് ഉണ്ടായിരുന്നു

പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി

കടുത്ത നിരാശയോടെയാണ് ഈ തീരുമാനമെന്നും എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്നും ടിറ്ററിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു

ബാങ്ക് വായ്പകൾ കൃത്യമായി ഉപയോഗിക്കാതെയും വ്യാജ രേഖകൾ സമർപ്പിച്ചും ബാങ്കിനെ വഞ്ചിച്ചു എന്നാണ് കേസ്

ഇന്ത്യയെ ആത്മ നിർഭറാക്കാനുള്ള മഹത്തായ ഉത്തരവാദിത്വം രാജ്യത്തെ ശാസ്ത്ര സമൂഹത്തിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബംഗളൂരുവിനു സമീപം ഹോസ്കോട്ടിലെ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് എജ്യുക്കേഷൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാവി തലമുറകൾക്കായി ശാസ്ത്ര സൌകര്യങ്ങൾ വികസിപ്പിക്കുന്ന മികച്ചു

പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന്റെ ക്ഷേമത്തിനായി ഭരണകൂടം നൽകിയ വാഗ്ദാനമാണ് ഇതിലൂടെ പൂർത്തിയായതെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ലഡാക്കിൽ കൂടുതൽ കൃത്യതയോടെ കാലാവസ്ഥാ പ്രവചനം നടത്താൻ ഇതിലൂടെ സാധിക്കും

ആന്ധ്രപ്രദേശ് അസം പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്നലെയും ഇന്നുമായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഡ്രൈ റൺ സംഘടിപ്പിച്ചത് വയോജനങ്ങൾ ആരോഗ്യപ്രവർത്തകർ മുൻനിര പോരാളികൾ തുടങ്ങിയ മുൻഗണനാ വിഭാഗ്രക്കാർക്ക് പ്രതിരോധകുത്തിവയ്പ്പ് ലഭ്യമാക്കുന്നതിനുള്ള തയ്യാറെട്ടൂപ്പുകൾ ഇതിന്റെ ഭാഗമായി അവലോകനം ചെയ്തു

ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ നായകൻ അജിങ്കൃ രഹാനെയാണ് കളിയിലെ താരം

ടി

മോഹൻ ബഗാൻ മത്സരം ആരംഭിച്ചു ഗോവയിലാണ് കളി ഇന്നലെ കരുത്തരായ ബാംഗ്ലൂർ എഫ് സിയെ എതിരില്ലാത്ത ഗോളിന് ഒരു ജംഷഡ്പൂർ പരാജയപ്പെടുത്തിയിരുന്നു